രാജ്യത്തെ കോവിഡ് ബാധിതർ അഞ്ച് ലക്ഷത്തിലധികം

ഇ നാഷണൽ സർവ്വീസ് സ്കീം വിദ്യാർത്ഥികൾ ബ്രെയ്ക്ക് ദി ചെയ്ൻ ഡയറി വിതരണം ചെയ്യും ത വിദേശത്തുനിന്ന് മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് സംസ്ഥാന പിന്നാക്ക വികസന കോർപ്പറേഷൻ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകും

അമ്പത്തി നാലര ലക്ഷത്തിലേറെപ്പേർക്ക് ഭേദമായി

അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധയും മരണവും റിപ്പോർട്ട് ചെയ്തത് രുമ രാജ്യത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം അഞ്ച് ലക്ഷത്തിലധികമാണ്

രണ്ടു ലക്ഷത്തോളം പേർ ചികിത്സയിൽ കഴിയുന്നുണ്ട്

രുമ കേരളത്തിൽ കോവിഡ് റിപ്പോർട്ട് ചെയ്ത ശേഷമുണ്ടായ ഏറ്റവും ഉയർന്ന രോഗ സ്ഥിരീകരണമാണ് ഇന്നലെ ഉണ്ടായത്

പാലക്കാട് ജില്ലയിലെ പറളിയെ ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ചു

മേഴ്സിക്കുട്ടിയമ്മ വിലയിരുത്തി

കോവിഡ് ബാധിതരുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ടെന്ന കണക്കുകൂട്ടലിലാണ് നടപടികൾ വയനാട് ജില്ലയിലും കരുതൽ നടപടികൾ ശക്തമാക്കാൻ മന്ത്രി എ

ജില്ലയിൽ സമ്പർക്കത്തിലൂടെ കോവിഡ് വ്യാപനം കുറവാണെങ്കിലും വരും ദിവസങ്ങളിൽ രോഗികളുടെ എണ്ണം വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന നിഗമനത്തിലാണ് തീരുമാനം ദേദ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഉറവിട നിർണ്ണയത്തിന് ബ്രെയ്ക് ദി ചെയ്ൻ ഡയറി തയ്യാറാക്കി വിതരണം ചെയ്യാൻ വൊക്കേഷണൽ ഹയർ സെക്കന്ററിയിലെ നാഷണൽ സർവ്വീസ് സ്കീം വിദ്യാർത്ഥികൾ തയ്യാറെടുക്കുന്നു

കടകളിലും വാഹനങ്ങളിലുമെത്തുന്ന ആളുകളുടെ വിശദാംശങ്ങൾ ഡയറിയിൽ എഴുതി സൂക്ഷിക്കണം ഇത് സംബന്ധിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാൻ ആരോഗ്യവകുപ്പും പൊലീസും വിദ്യാർത്ഥികൾക്കൊപ്പമുണ്ട്

ഗൾഫ് നാടുകൾക്ക് പുറമെ ലണ്ടൻ ശ്രീലങ്ക എന്നിവിടങ്ങളിൽനിന്നും ആളുകൾ വരുന്നുണ്ട്

രമ കരിപ്പൂർ വിമാനത്താവളത്തിലും സൌജന്യ റാപ്പിഡ് ആന്റിബോഡി ടെസ്റ്റ് ആരംഭിച്ചു

രുഭ ഞായറാഴ്ചകളിലെ സമ്പൂർണ്ണ ലോക്ഡൌൺ ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ പ്രാബല്യത്തിൽ ഉണ്ടാവില്ലെന്ന് സംസ്ഥാന ഗവൺമെന്റ് അറിയിച്ചു

കെ ബാലൻ അറിയിച്ചു സുഭിക്ഷ കേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട് വനിതാ സംരംഭകർക്ക് ചെറുകിട സ്ഥാപനങ്ങൾ തുടങ്ങാൻ പരാമവധി രണ്ടുലക്ഷം രൂപയും വായ്പ നൽകും പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ നാദാപുരം ഉപജില്ലാ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ആകാശവാണിയുടെയും ദൂരദർശന്റെയും പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെയും വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെയും യൂട്യൂബ് ചാനലുകളിലും പരിപാടി ഉണ്ടായിരിക്കും പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തിന് ശേഷം പ്രാദേശിക ഭാഷകളിൽ പരിഭാഷയും പ്രക്ഷേപണം ചെയ്യും ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി എട്ടിന് കേൾക്കാം

കൂടുതൽ വിവരങ്ങളുമായി അനുഷ ആത്മപ്രകാശ്

മന്ത്രി ഡോ

ടി ജലീലും മജീഷ്യൻ ഗോപിനാഥ് മുതുകാടും ചേർന്ന് രാവിലെ വീടുകളുടെ താക്കോൽ കൈമാറും ഖത്തറിലെ നെക്സ് ഗ്രൂപ്പ് ചെയർമാൻ അരീക്കോട് കുനിയിൽ അഹമ്മദ് ഇഖ്ബാൽ നൽകിയ സ്ഥലത്ത് ജ്യോതി ലബോറട്ടറീസാണ് വണ്ടൂർ കാരാട്ട് വീടുകൾ നിർമ്മിച്ചത് ദേദ മറ്റന്നാൾ എസ് എസ് എൽ സി പരീക്ഷാഫലം അറിയാൻ കൈറ്റ് വിപുലമായ സൌകര്യങ്ങളൊരുക്കി

രുമ കോൺഗ്രസ്സിനും രാജീവ്ഗാന്ധി ഫൌണ്ടേഷനും ചൈനയുമായി സാമ്പത്തി ഇടപാടുകൾ ഉണ്ടായിരുന്നെന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ

എന്നാൽ കോൺഗ്രസ് ഇത് സംബന്ധിച്ച ആരോപണം നിഷേധിച്ചു രമേ ഇന്ധന വിലവർദ്ധനയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നാളെ രാജ്യ വ്യാപകമായി പ്രക്ഷോഭം സംഘടിപ്പിക്കും പാർട്ടി എം പിമാരും എം എൽ എമാരും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെ നേരിൽ കണ്ട് വില വർദ്ധന പിൻവലിക്കാൻ നടപടി ആവശ്യപ്പെട്ട് നിവേദനം നൽകുമെന്ന് എ ഐ

സി ജനറൽ സെക്രട്ടറി കെ

രുദ അഴിമതി ആരോപണത്തിലെ അന്വേഷണത്തെത്തുടർന്ന് കോട്ടയ്ക്കൽ നഗരസഭാ സെക്രട്ടറി സുഗതകുമാറിനെ സസ്പെൻഡ് ചെയ്തു നഗരസഭയിലെ കരാറുകാരന്റെ പരാതിയെത്തുടർന്ന് കോഴിക്കോട് റീജിയണൽ ജോയിന്റ് ഡയറക്ടർ നടത്തിയ അന്വേഷണത്തിന് ശേഷമാണ് സസ്പെൻഷൻ രുമ കൊട്ടിയൂർ വൈശാഖോത്സവം നാളെ തൃക്കലശാട്ടത്തോടെ സമാപിക്കും

കോവിഡ് സാഹചര്യത്തിൽ ഭക്തർക്ക് ചടങ്ങുകളിൽ പ്രവേശനമുണ്ടാവില്ല